് ഭരണഘടന അനുശാസ്ട്രിക്കു്ന്ന അവകാശങ്ങളും കർത്തവൃങ്ങളും പൊതുജീവിതത്തിൽ പൊരുത്തപ്പെടുത്തു്നതിലൂടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടു പോക്ടാൻ ആകുമെന്നും പ്രധാനമന്ത്രി ് ആശുപത്രികളെ രോഗീസൌഹൃദമാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

അവ്വരിൽ എല്ലാവരും തന്നെ ഇന്ത്യയെ സുശക്തമാക്കുന്ന പാവ്ട്രപ്പട്ട്വരിൽ പാവപ്പെട്ടവർക്ക് കഴിവ് നേടിക്കൊടുക്കുന്ന ഭരണ്ണ്ലടന് രാജൃത്തിന് നൽകുവാൻ പ്രതിബദ്ധരായിരുന്നു നമ്മൂട്ടെട്ട് ഭൂരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങളും കൂർത്ത്വ്യങ്ങളും പൊതുജീവിതത്തിൽ പൊരുത്തപ്പെടുത്തുന്നതിലൂടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടു പോകാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

യുവാക്കളുടെ അന്വേഷണ ത്വരയാണ് കൂടുതൽ പുതുമ കണ്ടെത്തുന്നതിലും നൂതന ആശയങ്ങളിലേയ്ക്ക് നയിക്കുന്നതിലും അവരെ സഹായിക്കുന്നത് യുവാക്കളുടെ ചിന്താഗതികളെ ഭൂതലത്തിലേയ്ക്ക് കൊണ്ടുവന്നാൽ അവർക്ക് അത് പ്രകടിപ്പിക്കാൻ തുറന്ന അന്തരീക്ഷം നൽകിയാൽ രാജ്യത്ത് പുരോഗമനാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു

മൻ കി ബാത് ഗവൺമെന്റിന്റെ കാര്യമല്ല സമൂഹത്തിന്റെ കാര്യമാണ് പുരോഗതി കാംക്ഷിക്കുന്ന രാജ്യത്തിന്റെ കാര്യമാണ് രാഷ്ട്രീയമോ രാഷ്ട്രീയ ശക്തിയോ അല്ല മറിച്ച് സമൂഹൂനീതിയും സമൂഹശക്തിയുമാണ് ഭാരതത്തിന്റെ പ്രാണനെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു

കാസർഗോഡ് ഉക്കിനടുക്കയിൽ മെഡിക്കൽകോളേജ് ആശുപത്രി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പ്രളയം സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ജില്ലയുടെ ആരോഗ്യ മേഖലയുടെ വളർച്ചയിൽ വിട്ടുവീഴ്ചയുണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മന്ത്രി കെ

അതിനിടെ മുഖ്യമന്ത്രിയുടെ വേദിയ്ക്കരികിൽ പ്രതിഷേധവുമായി സംഘടിച്ചെത്തിയ ബി ജെ

എം ഒ അറിയിച്ചു

കൃഷി വകുപ്പു നടപ്പാക്കുന്ന പുനർജ്ജനി പദ്ധതിയുടെ പത്തനംതിട്ട ജില്ലാതല ഉത്ഘാടനം റാന്നിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

ഷാജി തന്റെ സ്ഥാനത്ത് മുല്ലപ്പള്ളിയാണെങ്കിലും കെ

ഷാജി വിഷയത്തിൽ തന്റെ നിലപാട് തന്നെ സ്വീകരിക്കുമെന്ന് സ്പീക്കർ പി

ജലീൽ വിഷയം പ്രതിപക്ഷത്തിന് സഭയിൽ ഉണ്ണയിക്കാമെന്നും കോടതി അയോഗൃത കല്പിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കെ

ഷാജിയെ നിയമസഭാ നടപടികളിൽനിന്ന് മാറ്റി നിർത്തുന്നതെന്നും സ്പീക്കർ പറഞ്ഞു

ഇത് നാലാം തവണയാണ് ഓസീസ് വനിതകൾ ലോക ജേതാക്കളാകുന്നത്

മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിൽ ആദ്യമത്സരത്തിൽ ഓസ്ട്രേലിയയാണ് വിജയിച്ചത്

ഇന്നലെ രാത്രി നിരോധനാജ്ഞ ലംഘിച്ചതിന്ദ് പ്പോലീസ് അറസ്റ്റ് ചെയ്തവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയിച്ചു

സൂരേന്ദ്രനെ ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് ബി ജെ പി മറ്റെന്നാൾ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേയ്ക്ക് മാർച്ച് നടത്തും

കൃഷി ജലസേചന വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്

വർഗീസ്കുര്യന്റെ ജന്മദിനാചരണത്തിന്റെ ഭാഗമായി മിൽമയുടെ മലബാർ മേഖല ഡയറി പ്താന്റുകൾ സന്ദർശിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരം നൽകുന്നുള്ള കോഴിക്കോട് കുന്ദമംഗലം കാഞ്ഞങ്ങൾട് കല്പറ്റ ഡയറികളിലാണ് ഇന്ന് മുതൽ ചൊവ്വാഴ്ച്ചവരെ സി്ട്ർശ്നം അനുവദിച്ചിരിക്കുന്നത്

അഞ്ച് വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ മൂവായിരത്തോളം കലാപ്രതിഭകൾ വിവിധ മത്സരങ്ങളിൽ മാറ്റുരക്കും ട്ടടടടടടടടടടടട ആലപ്പുഴ കുടിവെള്ളം ആലപ്പുഴ ജില്ലയിലെ കുടിവെള്ള വിതരണത്തിലുള്ള തടസ്സങ്ങൾ പരിഹരിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട വിവിധ ഏജൻസികളുടെ യോഗം അടിയന്തിരമായി വിളിക്കുമെന്ന് ജില്ലാ കളക്ടർ എസ്

പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് ജില്ലയിൽ പലയിടങ്ങളിലും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്